ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തിരക്കിട്ട ചർച്ചയിൽ

കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കോൺഗ്രസ് സ്ക്രീന്റിംഗ്ല് പ കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ

ജെ പി കോർ കമ്മിറ്റി യോഗം ഉച്ചയ്ക്കുശേഷം ക്ട്രോട്ടിയത്ത്

പദ്മ പുരസ്ക്കാർങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിതരണം ചെയ്തു

ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയു മായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടു

വിദേശകാരൃ സെക്രട്ടറി വിജയ് ഗോഖലെ ഇന്ന് വാഷിംഗ്ടണിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തും

സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏറ്റവും പെട്ടെന്ന് അന്തിമരൂപം നൽകുകയാണ് ലക്ഷ്യം

വിഭജനം സംബന്ധിച്ച് ചർച്ച പുരോഗമിക്കുകയാണ്

ജൂൺ എമുന്നീനാണ് നിലവിലെ ലോക്സഭയുടെ കാലാവധി അവസ്മാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റചട്ടം നിലവിൽ വന്നു

പങ്കാളിത്തം ഉറപ്പാക്കി തെരഞ്ഞെടുപ്പ് സമ്പുഷ്ടമാക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു കന്നി വോട്ടർമാരെല്ലാവരും വോട്ടവകാശം തന്നെ വിനിയോഗിക്കണമെന്നും വോട്ടിംഗ് ശതമാനത്തിൽ ചരിത്രം കുറിക്കണമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

വോട്ട് നൽകിയ സ്ഥാനാർത്ഥിക്കു തന്നെയാണോ അത് ലഭിച്ചിരിക്കുന്നതെന്ന് സ്ലിപ്പിൽ ക്ട് പ് ബോധ്യപ്പെടാം വോട്ട് ചെയ്തയുടനെ ഏഴ് സെക്കന്റ് ക്സ്മ്യാ് സ്ലിപ്പ് കാണാവുന്നതാണ്

ഓരോ നിയമസഭ മണ്ഡലത്തില്ലേയും ഒരു പോളിങ് സ്റ്റേഷന്റെ സ്ലിപ്പുകൾ മാത്രം എണ്ണി നോക്കും

ഇന്നു ചേരുന്നത് സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച മാത്രമാണെന്നും ലിസ്റ്റ് പിന്നീടേ പ്രഖ്യാപിക്കാനാകുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആണ് അന്തിമ തീരുമാനമെടുക്കുക അതേസമയം മൽസരിക്കാനില്ലെന്ന് മുതിർന്ന കൂടുതൽ നേതാക്കൾ പ്രതികരിച്ചു

കോർ കമ്മിറ്റി ഇന്ന് ഉച്ചയ്ക്കുശേഷം കൊച്ചിയിൽ യോഗം ചേരും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് യോഗത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന നാല് ബി ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ നയിച്ച പരിവർത്തൻ യാത്രയ്ക്ക് ഇന്നലെ സംസ്ഥാനത്ത് സമാപനമായി

യും നടൻ വിജയകാന്ത് നയിക്കുന്ന ഡി

യും തമ്മിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് ധാരണയിലെത്തി

ഡി എ യുടെ ഭാഗമായ ഡി

ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റിൽ ജനവിധി തേടും ഇന്നലെ ചെന്നൈയിൽ എ ഐ എ

നേതാവും മുഖ്യമന്ത്രിയുമായ എടപ്പാടി പളനിസാമിയും ഉപമുഖ്യമന്ത്രി ഒ പനിർശെൽവവും ഡി

അധ്യക്ഷൻ വിജയകാന്തും ഇതു സംബന്ധിച്ച ധാരണയിൽ ഒപ്പുവച്ചു ദീർഘനാളത്തെ ചർച്ചകൾക്കുശേഷമാണ് ഇരു പാർട്ടികളും തമ്മിൽ തെരഞ്ഞെടുപ്പ് ധാരണയിലെത്തിയത്

ഉപതെരഞ്ഞെടുപ്പിൽ എ ഐ ഡി എം കെ പിന്തുണയ്ക്കുമെന്ന് ഡി

രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപ്പതി രാംനാഥ് കോവിന്ദ് പുരസ്ക്കാരങ്ങൾ സമ്മാത്ത്ചത് വിശദാംശങ്ങളുമായി കരോൾ

ഏറ്റുമുട്ടൽ സ്ഥലത്തുനിന്നും വൻതോതിൽ ആയുധശേഖരം ടുത്തു കൊല്ലപ്പെട്ട ഭീകരരെ തിരിച്ചറിഞ്ഞിട്ടില്ല പ്രദേശത്ത് ക ഭീകരർ ഒളിച്ചിരിപ്പു ന്ന രഹസ്യ വിവരത്തെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് സുരക്ഷാസേന നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് ഏറ്റുമുട്ടൽ ഉ ായത് മുൻകരുതൽ എന്ന നിലയ്ക്ക് മേഖലയിൽ ഇൻ്റർനെറ്റ് സേവനം നിർത്തിവച്ചിരിക്കുകയാണ്

ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഓഫീസുകളിലും വസതികളിലും എൻ

എ തെരച്ചിൽ നടത്തിയിരുന്നു

ഉഭയകക്ഷി താല്പര്യമുള്ള വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും മേഖല ആഗോള പ്രശ്നങ്ങളും ചർച്ചാ വിഷയമാകും അമേരിക്കൻ നേതൃത്വവുമായി ഉന്നതതല സുരക്ഷാ ചർച്ചകൾക്കായാണ് ഗോഖലെ ഇന്നലെ അമേരിക്കയിലെത്തിയത് രാഷ്ട്രീയകാര്യ അ ർ സെക്രട്ടറി ഡേവിഡ് ഹാലെ അന്താരാഷ്ട്ര സുരക്ഷയുടെ ചുമതലയുള്ള അ ർ സെക്രട്ടറി ആൻഡ്രിയ തോംസൺ എന്നിവരുമായി ഗോഖലെ കൂടിക്കാഴ്ച നടത്തി

മരിച്ചവരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ള പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കൺസൾട്ടന്റാണ്